സാങ്കേതിക തകരാറുക്ക്റ്റ് മൂലം വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുവാൻ സാധിക്കാതെവരുന്ന സാഹചര്യത്തിൽ ആ ബൂത്തിലെ വി വി

ഈ ഫലം സ്ഥാനാർത്ഥികൾ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാത്രി ഏഴു മണിയോടെ ഔദ്യോഗികമായി ഫല പ്രഖ്യാപനം നടത്താനാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

വി

രീാ ആകാശവാണിയുടെ ടിറ്റർ എന്നിവയിലും തിരഞ്ഞെടുപ്പ് ഫലം ലഭ്യമാണ്